ഇന്തോ പെസഫിക് മേഖലയിൽ ഭീകരവാദത്തെ ചെറുക്കാൻ ആസിയാൻ ഉച്ച്കോടിയിൽ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ രാഷ്ട്രതലവൻമാരുമായി കൂടിക്കാഴ്ച നടത്തി

ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു

ആദിത്യബിർലാ ഗ്രൂപ്പിന്റെ സുവർണ്ണജൂബിലി ആഘോഷങ്ങൾ ബാങ്കോക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതുസംരംഭകത്വത്തിന് ഊന്നൽ നൽകി സംസാരിച്ച അദ്ദേഹം സംരംഭകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സുഗമമായി വ്യാപാരം നടത്താവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനമാണുള്ളത്

ജനസൌഹൃദ നികുതി പരിഷ്ക്കാരങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

വിദേശകാര്യവക്താവ് വിജയ്സിംഗ് താക്കൂർ ബാങ്കോക്കിൽ മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീകരവാദം ഭീഷണിയുയർത്തുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ വാദത്തോട് ആസിയാൻ നേതാക്കൾ യോജിപ്പു പ്രകടിപ്പിച്ചു ഇന്തോ പെസഫിക് മേഖലയിൽ സഹകരണം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തായ്ലാന്റ് പ്രധാനമന്ത്രി പ്രയുത് ഒ ചാനുമായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി

ഗതാഗത സംവിധാനങ്ങളും ഡിജിറ്റൽ കണക്റ്റിവിറ്റിയും മെച്ചപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്

ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാർഷിക ഉൽപ്പന്നീങ്ങൾക്കും മരുന്നുകൾക്കും വാഹനങ്ങൾക്കും ഇന്തോനേഷ്യയിൽ വിപ്പെണി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്തി എടുത്തും പറഞ്ഞു ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഇന്തോനേഷ്യൻ കമ്പ്നികളെ അദ്ദേഹം ക്ഷണിച്ചു നേരത്തേ പ്രധാനമന്ത്രി മ്യാൻമാർ കൌൺസിലർ ഓങ്ങ്സാൻ സൂക്ചിയുമായി ചർച്ച നടിത്തി

ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിലെ പ്രധാനഘടകമാണ് ആസിയാനുമായുള്ള ഇടപെടലുകൾ സംഘടിതവും സംയോജിതവും സാമ്പത്തികമായി പുരോഗതിയുമുള്ള ആസിയാൻ ആണ് ഇന്ത്യയുടെ തല്പര്യമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

മഴ പെയ്തതിനെത്തൂടർന്ന് ചെറിയ തോതിൽ പുകമഞ്ഞ് അന്തരീക്ഷത്തിൽ ഉരുണ്ട് കൂടിയതായി കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോ

മലിനീകരണം കുറയ്ക്കുന്നതിനായി വാഹനനിയന്ത്രണം ലക്ഷ്യമിട്ട് ഒറ്റ ഇരട്ട സംഖ്യ സമ്പ്രദായം നാളെ മുതൽ നിലവിൽ വരും

ഗോവ മുഖ്യമന്ത്രി ഡോ

ഇതേസമയം ഒഡീഷ ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു ഉത്തർപ്രദേശ് നിയമ സഭാംഗം ലോക്സഭയിലേയും രാജ്സഭയിലേയും അംഗം കേന്ദ്ര പാർലമെന്ററി കാര്യം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്

മൃദുല സിൻഹയായിരുന്നു നേരത്തെ ഗോവാ ഗവർണർ

ജെ

അപ്രതീക്ഷിതമായി ഉണ്ടായ പേമാരി മൂലം കർഷകർക്ക് വൻതോതിൽ കൃഷിനാശം സംഭവിച്ച സാഹചര്യത്തിൽ ആശ്വാസ നടപടികൾ കൈകൊള്ളാൻ എത്രയും വേഗം ഗവൺമെന്റ് രൂപീകരിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അകോലയിൽ വാർത്താലേഖകരോട് പറഞ്ഞു സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കാവൂൽ മന്ത്രി സഭയ്ക്ക് ചില പരിമിതികൾ ഉണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുപ്പാൻ എത്രയും വേഗം ഗവൺമെന്റ് രൂപീകരിക്കുമെന്നും ശ്രൂ ഫ്ട്ട്കാവിസ് പറഞ്ഞു മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചു മാത്രമേ ബി ജെ

ഡി

ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾക്കായി എൻ സി പി നേതാവ് ശരത് പവാർ നാളെ ന്യൂഡൽഹിയിൽ സോണിയാ ഗാന്ധിയുമായി ചർച്ച നടത്തും

സർവ്വകലാശാലകളുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തമേഖലകളിലേക്കുകൂടി വ്യാപിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി നിർദ്ദേശിച്ചു തൊഴിൽ നേടുക എന്നതിലുപരി നല്ല മനുഷ്യരായി മാറുക എന്നതാവണം വിദ്യാഭ്യാസത്തിന്റെ പരമോന്നത ലക്ഷ്യമെന്ന് രാഷ്ട്രപതി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു വനിതാ ശാക്തീകരണം സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പ്രാദേശിക ഭാഷകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഭാഷകൾ എന്നിവയുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ സിക്കിം സർവ്വകലാശാല നിർവ്വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

രാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റ പ്രഥമ മേഘാലയ സന്ദർശനമാണിത്

ശാരീരിക വെല്ലുവിളിനേരിടുന്നവരുടെ ഉന്നമനത്തിനായി നൽകിയ സംഭാവനകൾ മുൻനിർത്തി ഗുജറാത്തിൽ നിന്നുള്ള ദിവ്യാംഗനായ കനുഭായ് ഹസ്മുഖ്ഭായ് ടെയ്ലറിന് രാഷ്ട്രപതി ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകും

അനധികൃത കുടിയേറ്റക്കാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് പൌരത്വരജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മന്ത്രിസഭ ഉപസമിതിയിട്ടുണ്ട് ഇതുസംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുംബൈയിൽ വാർത്താലേഖകരോട് പറഞ്ഞു

ആർ ടി സി യൂണിയനുകൾ നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാളെ ബസ് സർവ്വീസുകൾ മുടങ്ങും

എസ് ആർ ടി സി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിൻമാറാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറാകണമെന്ന് ഗതാഗത മന്ത്രി എ

പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇന്ത്യൻ വനിതാ ടീം അമേരിക്കയെ തോല്പിക്കുകയായിരുന്നു

ഒരു ലോറിയിൽ ഒളിച്ച് കടക്കുകയായിരുന്നു ഇവർ ഇറ്റലി അതിർത്തിയോട് ചേർന്നുള്ള വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവരെ കണ്ടെത്തിയതെന്ന് ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കി